നാളെ സി

ഐ എം സെക്രട്ടേറിയറ്റും എൽഡിഎഫ് യോഗവും ചേരും കെപിസിസി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗവും യുഡിഎഫ് യോഗവും വരുംദിവസങ്ങളിൽ ചേരും

ഇത് കൂടി കണക്കിലെടുത്ത് തൃപ്തികരമായ പുനരധിവാസത്തിന് ശാസ്ത്രീയമായ പഠനം വേണ്ടിവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു